ഇന്ത്യ ചൈന രണ്ടാം അനൌദ്യോഗിക ഉച്ചകോടിക്ക് തമിഴ് നാട്ടിലെ മാമല്ലപുരത്ത് തുടക്കം

ഊഷ്മള വരവേൽപ്പ് ഉച്ചക്ക് ശേഷം എത്തുന്ന ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പീങിനെ പ്രധാനമന്ത്രി നേരിട്ട് സ്വീകരിക്കും

നേതാക്കളെ കൂടി ഗവൺമെന്റ് മോചിപ്പിച്ചു

ജസ്റ്റിസ് എസ് മണികുമാർ സത്യപ്രതിജ്ഞ ചെയ്തു

ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി ന്രെന്ദ്ര മോദി പ്രത്യേക വിമാനത്തിൽ ചെന്നൈയിലെത്തി ത്രിഴ്നാട് ഗവർണർ ബൻവാലി ലാൽ പുരോഹിത് മുഖ്യമന്ത്രി എടപ്പാടി പള്നി സ്വാമി ബിജെപി നേതാക്കൾ എന്നിവർ ചേർന്ന് പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി

നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ നേരിട്ട് സ്വീകരിക്കും കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത

ഉച്ചകോടിയ്ക്കായി പൈതൃക നഗരമായ മഹാബലിപുരം എന്ന മാമല്ലപൂരം ഒരുങ്ങിക്കഴിഞ്ഞു

വിമാനത്താവളവും പരിസരപ്രദേശങ്ങളും ഇരുരാജൃങ്ങളുടെയും ദേശീയപതാകകളും കുലവാഴകളും പൂക്കളും കൊണ്ട് പരമ്പരാഗതമായ രീതിയിൽ അലങ്കരിച്ചിട്ടുള്ളതായി ആകാശവാണി ലേഖകൻ അറിയിച്ചു ഇന്തൃയുടെ സാംസ് കാരിക വൈവിധ്യം വിളിച്ചോതുന്ന സ്വീകരണമാണ് ചൈനീസ് പ്രസിഡന്റിന് നൽകുക കനത്ത സുരക്ഷയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയും ചൈന്യൂർ തമ്മിൽ പുരാതന കാലം മുതൽ തുടരുന്ന സാംസ്കാരികൾ വ്യാപാര ബന്ധങ്ങൾ വെളിപ്പെടുത്തുന്നതിനും വൈവിധ്യം ബോധൃപ്പെടുത്തുന്നതിനും വ്വേണ്ടിയാണ് ഉച്ചകോടിക്ക് മഹാബലിപുരം തിരഞ്ഞെടുത്തത് കിഴക്കൻ ്രച്ചൈനാ നഗരമായ ഫൂജിയനുമായി ഏഴാം നൂറ്റാണ്ടിൽ വ്യാപാരബിന്റ്യമുണ്ടായിരുന്ന പല്ലവ രാജാക്കന്മാരുടെ രാജധാനിയായിരുന്നു മാമല്ലപുരം ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഇന്ത്യയുടെ അയൽ രാജ്യം കുട്ടികളെ തീവ്രവാദ ആശയങ്ങൾ പഠിപ്പിക്കുകയും ഭീകരസംഘടനകളിൽ ചേർക്കുകയും ചെയ്യുന്നതായി സംശയമുണ്ടെന്ന് പാകിസ്ഥാന്റെ പേരു പരാമർശിക്കാതെ യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പൌലേമി ത്രിപാഠി പറഞ്ഞു ഐക്യാരാഷ്ട്ര പൊതുസഭയിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തെക്കുറിച്ച് യുഎന്നിലെ പാകിസ്ഥാൻ സ്ഥാനപതി മലീഹ ലോധി നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു ശ്രീമതി ത്രിപാഠി

യവാർമിർ നൂർ മുഹമ്മദ് ഷൊയേബ് ലോണേ എന്നിവരെയാണ് മോചിപ്പിച്ചത് യവാർമിർ റാഫിയാബാദ് നിയമസഭാ സീറ്റിൽ നിന്നുള്ള മുൻ പ്പ് ഡി

ഷൊയേബ് ലോണേ വടക്കൻ കശ്മീരിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു നൂർ മുഹമ്മദ് ശ്രീനഗർ നഗരത്തിലെ ബാട്ട്മാലൂ പ്രശ്നബാധിത മേഖലയിലെ നാഷണൽ കോൺഫറൻസ് പ്രവർത്തകനുമാണ്

തീരുമാനം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ മറ്റൊരു സൂപ്രധാന ചുവടുവയ്പ്പാണെന്ന് കൂടിക്കാഴ്ചയ്ക്കിടെ ശ്രീ

വളരെ വ്യത്യസ്തനായ ഭരണാധികാരിയായിരുന്നു മഹാരാജ ജയചാമരാജ വഡിയാരെന്ന് എന്ന് ചടങ്ങിൽ ആധൃക്ഷൃം വഹിക്കവേ രാഷ്ട്രപതി പറഞ്ഞു രാജ്യത്തിന്റെ സ്വാതന്ത്ര ലബ്ധിയെ അംഗീകരിച്ച ആദൃ നാട്ടുരാജാവായിരുന്നു അദ്ദേഹം സംരംഭങ്ങൾ തുടങ്ങുന്നതിൽ മഹാരാജാവ് നൽകിയ പിന്തുണ പ്രചോദനാത്മകമാണെന്നും ശ്രീകോവിന്ദ് പറഞ്ഞു

കർഷകരുടെ ഗ്രാമീണ ജനതയുടെ ക്ഷേമത്തിനായി ജഠീവിതം ഉഴിഞ്ഞുവച്ച വൃക്തിയായിരുന്നു നാനാജിയെന്ന് ശ്രീ മോദി ട്വിറ്ററിൽ കുറിച്ചു രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് മഹത്തായ സംഭാവനകൾ നൽകിയ വൃക്തി കൂടിയായിരുന്നു ജയ്പ്രകാശ് നാരായൺ എന്ന് ശ്രീ മോദി പറഞ്ഞു

സംസ്ഥാനങ്ങളിലെ ജി

ഇന്ന് പുലർച്ചെ മംഗളൂരുവിലെ ഒരു സ്ഥകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ചികിത്സയിലായിരുന്നു ഗോപാൽ നാഥിന്റെ സംഗീത ജീവിതത്തിലേക്ക്

കർണാടകയിലെ ദക്ഷിണ കാനറയിൽ ജനിച്ച ഗോപാൽനാഥ് നാദസ്വര വിദ്വാനായ അച്ഛനിൽ നിന്നാണു സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ തുടങ്ങിയത് ലോകത്തിലെ പ്രശസ്തമായ ഒട്ടുമിക്ക രാജ്യാന്തര സംഗീതോൽസവങ്ങളിലും കദ്രി ഗോപാൽനാഥിന്റെ സാക്സ് മുഴങ്ങിയിട്ടുണ്ട് ബിബിസിയുടെ പ്രൊമനേഡ് കച്ചേരിയിൽ ക്ഷണം കിട്ടിയ ആദൃത്തെ കർണാടക സംഗീതജ്ഞൻ ബെർലിനിലെയും പ്രേഗിലെയും ജാസ് ഐസ്റ്റിവലുകളിൽ അവസരം

കാഞ്ചി കാമക്കോട്ടി പീഠത്തിന്റെയും ശൃംഗേരി മഠത്തിന്റെയും ആസ്ഥാന വിദ്വാൻ പദവിയുമുണ്ട്

ഗോപാൽ നാഥിന്റെ മകൻ കദ്രി മണികണ്ഠ് പ്രശസ്തനായ സംഗീതജ്ഞനാണ്

എൻബി വായ്പാ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി മെഹുൽ ചോക്സിയെ പ്രഖ്യാപിത കുറ്റവാളിയായി പരിഗണിക്കാൻ സി ബി ഐ

ബി ഐ കേസുകൾക്കായുള്ള പ്രത്യേക ജഡ്ജി വി

സ്വന്തം കുറ്റം മറയ്ക്കാൻ ആദ്യ എഫ് ഐ ആറിന് മുമ്പ് തന്നെ ചോക്സി രാജ്യം വിട്ടതായി സി ബി ഐ അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്

ഒരൂ കുടുംബത്തിലെ നാല് സ്ത്രീകളും മൂന്ന് കുട്ടികളുമാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം

നടപ്പാതയിൽ ഉറങ്ങിക്കിടന്ന തീർത്ഥാടകർക്കു മുകളിലേക്ക് സ്വകാരൃ ബസ് പാഞ്ഞുകയ്റുക്യായിരുന്നു

ഇതുവരെ അഞ്ച് കോടിയോളം രൂപയുടെ കളളപ്പണം പിടിച്ചെടുത്തെന്ന് ആദായനികുതിവകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു

ഷെറീഫിനെ ഇന്ന് തന്നെ ജയിലിലെത്തി അറസ്റ്റ ്ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനാണ് ബ്യൂറോയുടെ നീക്കം

ഭീകര പ്രിരുദ്ധ സേനയാണ് പാക്ക് പഞ്ചാബിൽ ഇവരെ അറസ്റ്റ് ചെയ്തിൽ അറസ്റ്റിലായവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇത് മാസം പാരീസിൽ നടക്കുന്ന ഭീകരവാദ വിരുദ്ധ സമ്മേളനത്തിന് മുന്നോടിയായാണ് അറസ്റ്റ്

സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനക്കയറ്റം ലഭിച്ച ജസ്റ്റിസ് ഋഷികേശ് റോയി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് ജസ്റ്റിസ് മണികുമാറിന്റെ നിയമനം

വൻ സുരക്ഷാ സന്നാഹത്തോടെയാണ് പോലീസ് പ്രതികളെ വീട്ടിലെത്തിച്ചത് ജോളിയടക്കമുള്ള പ്രതികളെ കൊണ്ടുവരുന്നതറിഞ്ഞ് പ്രദേശത്ത് വൻ ജനക്കൂട്ടം എത്തിയിരുന്നു

കൊലപാതക പരമ്പരയിലെ ആദ്യ മൂന്ന് കൊലപാതകങ്ങളും നടന്നത് പൊന്നാമറ്റത്തെ വീട്ടിലാണ് അവശേഷിക്കു്ന്ന സയനൈഡും ജോളിയുടെ ഫോണും കണ്ടെടുക്കുക എന്നതാണ് പ്രധാനം

ഫ്ളാറ്റ് പൊളിക്കുന്നതിന് ചുമതലയുളള ഫോർട്ട് കൊച്ചി സബ് കളക്ടർ സ്നേഹിൽകുമാർ സിങ്ങ് ഇന്നലെ സർവാതേയുമായി ചർച്ച നടത്തിയിരുന്നു